കാർഷിക മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ കർഷകർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുത്തായി മൻ കീ ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ വളരുകയാണെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ

ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് ഉൾപ്പെടെ ഇന്ന് രണ്ട് മത്സരങ്ങൾ

കർഷകരുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല വളരെയധികം ചർച്ച കൾക്ക് ശേഷമാണ് നിലവിലെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നതെന്നും അദ്ദേഹം പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പറഞ്ഞു

തങ്ങൾ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

ആദ്യമായാണ് ഇന്ത്യ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്

പ്രാദേശിക സഹകരണവും സമാധാനവും സുരക്ഷ വ്യാപാരം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ സ്ഥഹകരണം ഊട്ടിയുറപ്പി ക്കാനുള്ള ചർച്ചകളാണ് നാളത്തെ യോഗ്യത്തിൽ നടക്കുക

കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതിയും സാരനാഥിലെ പുരാവസ്തു കേന്ദ്രവും പ്രധാനമന്ത്രി സന്ദർശിക്കും

എല്ലാവർഷവും കാർത്തിക പൂർണിമയിൽ ആഘോഷിക്കുന്ന ദേവ ദീപാവലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വാരാണസിയിലെ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി ദീപം തെളിക്കലിന് തുടക്കം കുറിക്കും

ചർച്ചയ്ക്കായി ഡിസംബർ മൂന്നിന് കേന്ദ്ര കൃഷിമന്ത്രി കർഷരെ ക്ഷണിച്ചിട്ടുണ്ട് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു

മൂന്നാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ കോൺഫറൻസിന്റെ വിർച്ചൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു് അദ്ദേഹം

അനുഭവങ്ങളിൽ നിന്നുപാഠം ഉൾക്കൊള്ളാനും മികച്ച സാങ്കേതികവിദൃ രാജ്യത്തേക്ക് എത്തിക്കാനും മികച്ച മൂലധനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കാനും ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വയംപര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സാങ്കേതികവിദ്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാനാകും രാജ്യത്തെ സാങ്കേതിക സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായ മേഖലയ്ക്കും ഭരണകൂടം ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

സുക്മ ജില്ലയിൽ സിആർപിഎഫിന്റെ കോബ്ര ബറ്റാലിയൻ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്

അതിനിടെ കോവിഡ് പ്രതിരോധ മരുന്നിന് അടിയന്തര അനുമതി നൽകാനുള്ള അപേക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുമെന്ന് സെറം ഇന്സ്റ്റിറ്റിയൂട്ട് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി കോവിഡ് ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിരോധമരുന്നിന്റെ രണ്ടാം ഘട പരീക്ഷണം രാജ്യത്തു തുടരുകയാണ്

ഇറ്റലി പോളണ്ട് ബ്രിട്ടൺ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അഞ്ഞൂറിലേറെ പേർ ഇന്നലെ മരിച്ചു

പ്രസിദ്ധമായ തിരുവണ്ണാമല ശ്രീ അരുണാ ചലേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ഭരണി ദീപം തെളിയിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല

ഇതിന്റെ ഭാഗമായി സന്ധ്യക്ക് വീടുകളിലും വഴിയോരങ്ങളിലും ദീപങ്ങളാൽ അലങ്കരിക്കുകയും മധുരപദാർഥങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും

ആദ്യ മത്സരത്തിൽ വൈകിട്ട് അഞ്ചിന് ജംഷഡ്പൂർ ഒഡിഷയെ നേരിടും

സീസണിൽ കേരളത്തിന്റെ മൂന്നാം ഈ മത്സരമാണ് ഗോവ ബംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്നത്